പെട്ടിമുടി ദുരന്തത്തിൽ മരിച്ച രണ്ടു പേരുടെ മൃതദേഹം കൂടി ഇന്ന് കണ്ടെടുത്തു

ജമ്മു കാശ്മീലെ വൈഷ്ണോദേവീ ക്ഷേത്രത്തിലേക്കുള്ള തീർത്ഥാടനം ഇന്ന് മുതൽ പുനരാരംഭിച്ചു

പദ്ധതിയുടെ ഭാഗമായി ഓരോ ഇന്ത്യക്കാരനും ഹെൽത്ത് ഐ

ദേശീയ ഡിജിറ്റൽ ഹെൽത്ത് മിഷന്റെ വരവോടെ ആരോഗ്യ മേഖലയിൽ വിപ്ലവകരമായ പരിവർത്തനത്തിനാണ് വഴിയൊരുങ്ങുന്നത് ഒരോ പൌരന്റെയും ആരോഗ്യ പരിശോധനാ വിവരങ്ങൾ രോഗവിവരം ഏത് ഡോക്ടർ എപ്പോൾ എന്ത് മരുന്ന് നൽകി തുടങ്ങി ആരോഗ്യ സംബന്ധമായ സമഗ്ര വിവരങ്ങൾ ഈ ഐ ഡി

ലോക രാജ്യങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ കോവിഡ് മരണ നിരക്ക് ഏറ്റവും കുറഞ്ഞ രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ കൂടുതൽ വിവരങ്ങളുമായി ലക്ഷ്മി ശ്രീ വിജയ പ്പോയിസ് കോവിഡ് മരണനിരക്ക് കുർയ്ക്കാനായതിനു പുറമേ രോഗമുക്തി നേടുന്നവരുടെ എണ്ണത്തില്ലെ വർധനയും രാജ്യത്തിന്റെ കോവിഡ് പ്രതിരോധത്തിന് കരുത്ത് പകരുന്നു

കേന്ദ്ര പ്രിദ്യഭ്യാസ മന്ത്രി രമേശ് പൊഖ്റിയാൽ നിശാങ്ക് ആണ് കിറ്റ് പുറത്തിറ്ക്കിയത്

സ്വാതന്ത്ര്യ ദിന പ്രസംഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്ർമോദി ഇക്കാര്യം പ്രഖ്യാപിച്ചിരുന്നു

ഇതിൽ മൂന്നിലൊന്നു കേഡറ്റുകൾ പെൺകുട്ടികൾ ആയിരിക്കും

വാജ്പേയിയുടെ സമാധി സ്ഥലമായ സദൈവ് അടലിലും രാഷ്ട്രപതി സന്ദർശനം നടത്തി ഉപരാഷ്ട്രപതി എം വെങ്കയ്യ നായിഡുവും മുൻ പ്രധാനമന്ത്രിയ്ക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു

അദ്ദേഹം രാജൃത്തിന്റെ പുരോഗതിക്ക് വേണ്ടി നടത്തിയ നിസ്തുല സേവനങ്ങൾ എക്കാലവും സ്മരിക്കപെടുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു

നിരവധി മേഖലകളിൽ പാഴ്സി സമൂഹം നൽകിയ സംഭാവനകൾ രാജ്യം എന്നും സ്മരിക്കുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു

നല്ലതണ്ണി ആറിൽ ഗ്രാവൽ ബാങ്ക് ഭാഗത്ത് ഡോഗ് സ്കാഡിന്റെ സഹായത്തോടെ നടത്തിയ തെരച്ചിലിലിണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത് ഇനിയും കാണാതായ വർക്ക് വ്േണ്ടിയുള്ള തെരച്ചിൽ തുടരാൻ ഇന്നലെ മൂന്നാറിൽ ചേർന്ന് ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും യോഗത്തിൽ തീരുമാനിച്ചിരുന്നു പുഴയോരങ്ങൾ കേന്ദ്രീകരിച്ചുള്ള തെരച്ചിലാണ് ഇപ്പോൾ നടന്നുവരുന്നത്

കോവിഡ് സുരക്ഷാ മാനദണ്ഡങ്ങൾ പൂർണ്ണമായും പാലിച്ചു കൊണ്ടാവും തീർത്ഥാടനം അനുവദിക്കുന്നത്

ഒരു പത്രത്തിന്റെ മുഖപ്രസംഗത്തിലാണ് ഇത്തരത്തിൽ വാർത്ത വന്നത് ഇത് വസ്തുതാ വിരുദ്ധമാണെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചു

കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി തുടരുന്ന മഴയും നേപ്പാളിലെ മലയോര മേഖലയിൽ നിന്ന് വെള്ളം എത്തുന്നതുമാണ് സാഹചര്യം രൂക്ഷമാകാൻ കാരണ്ണം

കൺട്രോൾ റൂമുകളും ആരംഭിച്ചിട്ടുണ്ട്

കരിയറിലുടനീളം പിന്തുണ നൽകിയ എല്ലാവർക്കും അദ്ദേഹം നന്ദി അറിയിച്ചു

ക്രിക്കറ്റ് താരം സുരേഷ് റെയ്നയും രാജ്യാന്തര ക്രിക്കറ്റിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ചു

പാകിസ്ഥാൻ സിന്ന് ഭരണകൂടത്തിന്റെ അറിവോടുകൂടി നടക്കുന്ന ഈ കാണാതാവലിനു അവസാനം കുറിക്കണമെന്നും കാണാതായവരെ മടക്കി എത്തിക്കണമെന്നും പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു കറാച്ചിയിലെ വീട്ടിൽ നിന്ന് ചൊവ്വാഴ്ച തട്ടിക്കൊണ്ടുപോയ പണ്ഡിതനും അധ്യാപകനുമായ സാരംഗ് ജോയോ ഉൾപ്പെടെ എല്ലാവരെയും മോചിപ്പിക്കണമെന്ന് പ്രതിഷേധത്തിനു നേതൃത്വം നൽകുന്ന സിന്ധ് ഫൌണ്ടേഷൻ വ്യക്തമാക്കി

മാർച്ചിന് ശേഷം ഇതാദ്യമായാണ് പ്രതിദിന കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ ഇത്രയും വർദ്ധനയുണ്ടാകുന്നത്

സംസ്ഥാനത്തിന് പുറത്ത് യാത്ര ചെയ്യാത്തവർക്കാണ് ഇപ്പോൾ കൂടുതലായി രോഗം സ്ഥിരീകരിക്കുന്നത്

ഡോക്ടർമാർ നഴ്സുമാർ ആരോഗ്യ പ്രവർത്തകർ പോലീസ് ഉദ്യോഗസ്ഥർ ശുചീകരണ തൊഴിലാളികൾ തുടങ്ങിയവർ ഇതിൽ ഉൾപ്പെടുന്നു കോവിഡ് പ്രതിരോധ പ്രവർത്തകരുടെ സേവനത്തിന് രാഷ്ട്രപതി അഭിവാദ്യം അർപ്പിച്ചു